പ്രധാനമന്ത്രി നരേന്ദ്രി്മോദ്ദി പ്രകീർത്തിച്ചു ഏറ്റവും മികച്ചത് വരാനിരിക്കുന്നത്യുള്ളൂ എന്നും പ്രധാനമന്ത്രി

താരം ബിയാങ്ക ആൻഡ്രീസ്ക്യൂവിന്

എസ് ആർ ഒ ഓർബിറ്റർ ചന്ദ്രന് ചുറ്റുക് ഭ്മെണം ചെയ്യുകയാണ് ഇത് ചന്ദ്രനിലെ ജലസാന്നിദ്ധ്യത്തെക്കുറിച്ചുള് ധാതുക്കളെ കുറിച്ചുള്ള പഠനത്തിന് സഹായകമാകുമെന്നുര് ഐഎസ്ആർഒ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

ലാൻഡർ ഇറങ്ങുന്നു ചീന്ദ്രന്റെ ദക്ഷിണധ്രുവം വൻ ഗർത്തങ്ങളും അഗ്നിപർവത ്യസ്ഫോടനങ്ങളെ തുടർന്ന് രൂപപ്പെട്ട നിരവധി പാറക്കെട്ടുകളുടെയിട്ടു മേഖലയാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എസ് ആർ ഒ

വിക്രം ലാൻഡറിന്റെ ആശയവിനിമയം നഷ്ടമായതിനുശേഷം ആദ്യമായി പ്രസാർ ഭാരതിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ശിവൻ പറഞ്ഞു

ഈ അവസരത്തിൽ രാഷ്ട്രം ഐ

ആർ ഒ യുടെ ഒപ്പമുണ്ടെന്നും നാം കൂടുതൽ കരുത്താർജ്ജിക്കുകയാണ് വേണ്ടതെന്നൂറ്റ് പ്ലൂപ്പെടാനമന്ത്രി പറഞ്ഞു ബംഗളൂരുവിലെ ഐ എസ് ആർ ഒ

നമ്മുടെ ശാസ്ത്രജ്ഞരിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നുവെന്നും പ്ലൂയാനമന്ത്രി കൂട്ടിച്ചേർത്തു

യുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമാണെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങുക എന്നത് വളരെ ശ്രമകരമായ ദൌത്യമായിരുന്നുവെന്നും ഈ വെല്ലുവിളിയാണ് ഇസ്രോ ഏറ്റെടുത്തതെന്നും നാസ ട്വിറ്ററിൽ അറിയിച്ചു

താഴ്വരയിലെ സ്ഥിതിഗതി പ്രതീക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ടതായി ശ്രീ

വി ഐ പികളുടെ യാത്രയ്ക്കുള്ള പ്രത്യേക വിമാനത്തിന് വ്യോമപാത നിരസിക്കാനുള്ള പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ തീരുമാനത്തെ ഇന്ത്യ അപലപിച്ചു ഏതൊരു രാജ്യവും സാധാരണയായി അനുവദിക്കുന്ന കാര്യമാണ് പാകിസ്ഥാൻ തടഞ്ഞിരിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു ഇത്തരം ഏകപക്ഷീയമായ നടപടികളുടെ ഫലശൂന്യത പാകിസ്ഥാൻ തിരിച്ചറിയണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നിയമം ലംഘിക്കുന്നവർ മാത്രമാണ് പിഴ ഒടുക്കേണ്ടി വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ റോഡ് സുരക്ഷാ നിയമങ്ങൾ ഗൌരവമായി എടുക്കുന്നില്ലെന്നും ചെറിയ തുക പിഴ നൽകി രക്ഷപ്പെടാറുണ്ടെന്നും കർശന നിയമങ്ങൾ ഉണ്ടാകുന്നതുവരെ ഈ മനോഭാവം അവസാനിക്കില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

കനത്ത മഴ ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചിട്ടില്ല

സാമ്പൽപൂർ ജർസ്ഗുഡ ബരാഗ് എന്നീ ജില്ലകളിൽ നാളെവരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വെള്ളിയാഴ്ച മുതൽ പുരി ഗഞ്ചം കന്തമാർ എന്നിവിടങ്ങളിൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്

ഫൈനലിൽ സെറീനാ വില്യംസിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ആൻഡ്രീസ് ക്യൂ പരാജയപ്പെടുത്തിയത്

കഴിഞ്ഞ നാല് ഗ്രാന്റ്സ്താം ഫൈനലിലും സെറീനാ വില്യംസ് പരാജയപ്പെട്ടിരുന്നു

ഡി എഫ്

കേരള കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്യുന്ന അദ്ദേഹത്തിന് പാർട്ടി ചിഹ്നമായ രണ്ടില ലൂഭീക്കാത്തതിനാലാണ് കൈത ച്ചുക്ക ചിഹ്നമായി അനുവദിച്ചത്

ഇതിന് മുന്നോടിയായി ഇന്ന് വൈകിട്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരം കനകകുന്നിൽ ഓണപ്പതാക ഉയർത്തും